എണ്ണ വില വർദ്ധിക്കുന്നതിനാൽ ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇറാനിൽ നിന്ന് ഭീഷണിയില്ലെന്ന് യു എ ഇിഗവൺമെന്റ് നാല് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും രണ്ട് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഹരി വിൽപനയ്ക്ക് കേന്ദ്രമന്ത്രി സഭയുടെ അനുമതി സംസ്ഥാന ഗവൺമെന്റിന്റെ ആഗോള നിക്ഷേപക സംഗമത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം കോഴിക്കോട് ജില്ലയിൽ അഞ്ചുപേർക്ക് എച്ച് വൺ എൻ വൺ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി ഇന്ന് ചെന്നൈ

യു എസ് ഇറാൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതിനാൽ ഏതു സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറെടുപ്പ് നടത്തുകയാണെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്രപ്രധാൻ അറി യിച്ചു രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു എണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യ മുൻപന്തിയിൽ നിൽക്കുന്നതിനാൽ സംഭവവികാസങ്ങൾ ഗവൺമെന്റ് സസൂക്ഷ്മം നിരീക്ഷിച്ചുവരികയാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു ഇറാനിൽ നിന്ന് യു എ ഇയ്ക്ക് ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടു കൾക്ക് സ്ഥിരീകരണമില്ലെന്ന് യു എ ഇ ഗവൺമെന്റ് അറിയിച്ചു ഇപ്പോ ഴത്തെ സംഭവവികാസങ്ങൾ പൌരന്മാരെയോ യു എ ഇയിൽ താമസിക്കു ന്നവരെയോ സന്ദർശകരെയോ ബാധിക്കില്ലെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി ദുബായിയെ ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന വാർത്തകൾ വ്യാജമാണെന്ന് ദുബായ് മീഡിയ ഓഫീസ് ടിറ്ററിൽ അറിയിച്ചു ഇറാക്കിലെ യു എസ് സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ യു എസ് സൈനികരോ ഇറാഖികളോ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു വളരെ ചെറിയ നാശനഷ്ടം മാത്രമാണ് സംഭവിച്ചതെന്ന് വൈറ്റ് ഹൌസിൽ നിന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു ആണവായുധങ്ങൾ നിർമ്മി ക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്ന് ട്രംപ് വൃക്തമാക്കി സമാ ധാനം ആഗ്രഹിക്കുന്നവരുമായി സമാധാനം പാലിക്കാൻ അമേരിക്ക എപ്പോഴും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനെതിരെ ശക്തമായ ഉപരോധം അമേരിക്ക ഉടൻ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ശക്തമായ പ്രതിരോധത്തിന് സൈനികപരമായും സാമ്പത്തികമായും അമേ രിക്കയ്ക്ക് ശക്തിയുണ്ടെന്നും ട്രംപ് പറഞ്ഞു

ബാഗ്ദാദിലെ യു എസ് എംബ സിക്ക് സമീപമാണ് റോക്കറ്റുകൾ പതിച്ചത്

രാജൃത്തിന്റെ വിക സനത്തിന് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവ നയും ഈ ദിനാചരണത്തിന് പിന്നിലുണ്ട് വിദേശരാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ സമൂഹവുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മീഡിയ കോൺഫറൻസ് വഴി ഇന്ന് ആശയവിനിമയം നടത്തും മിനറൽസ് ആന്റ് മെറ്റൽ ട്രേഡിംഗ് കോർപറേഷൻ ലിമിറ്റഡ് ഉൾപ്പെടെ നാല് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും രണ്ട് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഹരി വില്പനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി

ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ഔദ്യോഗിക വക്താവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു ് സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ആഗോള നിക്ഷേപക സംഗമമായ അസെൻഡ് കേരള രണ്ടാം ലക്കം ഇന്ന് കൊച്ചിയിൽ ആരംഭി ക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ദേശീയ അ ന്തർദേശീയതലത്തിലെ വ്യവസായികളും നിക്ഷേപകരുമടക്കം രണ്ടായിര ത്തിൽപരം പേർ രണ്ടു ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കും

മന്ത്രിമാരും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും വിവിധ സെഷനുകളിൽ സംസാരിക്കും

ഹൌസ് ബോട്ട് വേമ്പനാട്ട് കായലിൽ ഒന്നര മണിക്കൂറോളം തടഞ്ഞിട്ട സംഭവം അങ്ങേയറ്റും അപല പനീയമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ അതിഥിയായി കേരള സർവകലാശാലയിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കാൻ എത്തിയ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന മാനസിക ബുദ്ധിമുട്ടിൽ മന്ത്രി ഖേദം പ്രകടിപ്പിച്ചു വിനോദസഞ്ചാര മേഖലയെ ഹർത്താലിൽ നിന്നും പണിമുടക്കുകളിൽ നിന്നും ഒഴിവാക്കുവാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുൻപ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ധാരണയായതാണെന്നും സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയെ ഇന്നലെ നടന്ന പണിമുട ക്കിൽ നിന്നും ഒഴിവാക്കിയതാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

ഹയർസെക്കൻഡറി സ്കൂളിലെ വിദ്യാർഥികൾക്കും അധ്യാപകർക്കുമാണ് എച്ച് വൺ എൻ വൺ പനി സ്ഥിരീകരിക്കച്ചത്

ആനയാംകുന്ന് സ്കൂളിൽ എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ച തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ

കണ്ണൂർ ജില്ലയിൽ ചിക്കൻപോക്സ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ

പേവിഷബാധക്കെതിരെയും ജാഗ്രത് പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു

ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കോഴിക്കോട്ട് നടക്കുന്ന മൂന്നാം ഹോം മത്സരത്തിൽ ഗോകുലം കേരള എഫ് സി നിലവിലെ ചാംപ്യൻമാരായ ചെന്നൈ സിറ്റി എഫ് സിയെ നേരിടും വൈകീട്ട് ഏഴിനാണ് മത്സരം പോയിന്റ് പട്ടികയിൽ ഗോകുലത്തിന് പിന്നിലാണ് ചെന്നൈ സിറ്റി എഫ്സിയുടെ സ്ഥാനം ഇന്ന് മറ്റു മത്സരങ്ങളിൽ കൊൽക്കത്തയിൽ മോഹൻ ബഗാൻ ഇന്ത്യൻ ആരോസിനെ നേരിടും ഐസ്വാളിൽ ഐസ്വാൾ എഫ് സി ്ഗോപ്പ ചർച്ചിൽ ബ്രദേഴ്സിനോട് ഏറ്റുമുട്ടും ഇന്നലെ ഇംഫാലിൽ നടന്ന മത്സരത്തിൽ ട്രാവു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് നെരോക്ക എഫ്സിയെ പരാജയപ്പെടുത്തി

ഐ എസ് എൽ ഫുട്ബോളിൽ എഫ് സി ഗോവയ്ക്ക് ജയം മഡ്ഗാവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ എതിരില്ലാത്ത രണ്ട് ഗോളി നാണ് എഫ് സി ഗോവ തോൽപിച്ചത് ഇന്ന് ബംഗളൂരു എഫ് സി ജംഷ ഡ്പൂർ എഫ് സിയെ നേരിടും

അഞ്ചാമത് കേരള ചരിത്ര കോൺഗ്രസ് ഇന്ന് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ആരംഭിക്കും ഫ്രാൻസിലെ വി എസ് എ സർവകലാശാല സാമൂഹിക ശാസ്ത്ര വിഭാഗം ഡയറക്ടർ ഡോക്ടർ കപിൽ രാജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ഇതിന്റെ ഭാഗ മായി പൊലീസ് വീടു വീടാന്തരം പരിശോധന നടത്തും ഒഴിപ്പിക്കൽ മേഖ ലയിൽ എല്ലാ വാഹന ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട് പൊലീസ് ബാരി ക്കേഡുകൾ നീക്കുന്ന മുറയ്ക്ക് പരിസരവാസികൾക്ക് ഭവനങ്ങളിലേക്ക് മട ങ്ങാവുന്നതാണെന്നും മാർഗ്ഗരേഖയിൽ പറയുന്നു അതിനിടെ കൈട്ടിടങ്ങ ളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലി അന്തിമഘട്ടത്തിലെത്തി പരിസരവാസികളിൽ ഭൂരിഭാഗവും വീടൊഴിഞ്ഞു പോയ്യിരിക്കയാണ്

ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ ഇന്ന് രാവിലെ ഏഴിന് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിനു മുന്നിൽ നിന്ന് ആരംഭിക്കും ആയിരത്തിലധികം സ്കൂൾ ്ര വിദ്യാർഥികൾ പങ്കെടുക്കും ടാഗോർ തിയേറ്ററിൽ നടന്നെത്തുന്ന കുട്ടികൾക്കായി പ്രഭാത ഭക്ഷണവും വിവിധ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്

മാനിച്ച കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ അർഹ നല്ലെന്നും രാജിവെച്ച് ഒഴിയാൻ മാന്യത കാണിക്കണമെന്നും തപസ്യ കലാസാഹിതൃവേദി സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് ആവശൃപ്പെട്ടു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിലെ ലേഖനം മലയാളികളെ മുഴുവൻ നാണിപ്പിക്കുന്നതാണെന്നും അക്കിത്തത്തിന് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാരം കേരളത്തിന് ലഭിച്ച അംഗീകാരമാണെന്നും യോഗം വൃക്ത മാക്കി

രണ്ടു യുവാക്കൾ മരിച്ചു ഗുരുവായൂർ സ്വദേശികളായ അബ്ദുൾ ഹക്കീം മുഹമ്മദ് ഇർഷാദ് എന്നിവരാണ് മരിച്ചത് പുലർച്ചെ രണ്ടരയോടെ പത്രവു മായി പോവുകയായിരുന്ന കാർ ബസ്സുകൾക്കിടയിൽപ്പെട്ടായിരുന്നു അപകടം

കളിയിക്കാവിള സ്റ്റേഷ നിലെ സ്പെഷ്യൽ സബ് ഇൻസ്പെൿർ മാർത്താണ്ഡം സ്വദേശി വിൽസൺ ആണ് മരിച്ചത് കൊലക്കേസ് പ്രതിയായ രാജ്കുമാറാണ് വെടിവെച്ചതെന്ന് പൊലീസ് അറിയിച്ചു

യോഗിച്ച് വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമനടപടി സ്ഥീകരി ക്കുമെന്ന് വയനാട് ജില്ലാ കലക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള അറിയിച്ചു ജില്ലയുടെ ഭരണാധികാരിയെന്ന നിലയിൽ തന്റെ ഓഫീസിൽ വരുന്നവരെ കാണുന്നതും അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നതും അപേക്ഷകളോ മറ്റോ വാങ്ങിവയ്ക്കുന്നതും തന്റെ ചുമതലയുടെ ഭാഗം മാത്രമാണെന്നും അതിനെ മറ്റ് രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ശരിയ ല്ലെന്നും കലക്ടർ പറഞ്ഞു

തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പുതിയ അത്യാഹിത വിഭാഗം എത്രയുംവേഗം പ്രവർത്തനസജ്ജമാക്കി തുറന്നുകൊടുക്കാൻ മന്ത്രി കെ

വർക്കല കട യ്ക്കാവൂർ ചിറയിൻകീഴ് എന്നിവിടങ്ങളിൽ ട്രെയിനിന് സ്റ്റോപ്പും അനുവ ദിച്ചതായി അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞു

നടക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പൊലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡാൻസാഫ് ടീം നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു കൊല്ലം വടക്കേവിള സ്വദേശി ഓമനക്കുട്ടനാണ് അറസ്റ്റിലായത് ് ് ് ് ് ് കടുവ ഭീതിയിൽ കഴിയുന്ന വയനാട് പഴേരി മുതൽ വടക്കനാട് വരെ മൂന്നു കിലോമീറ്റർ വനപാതയോരത്തെ അടിക്കാട് നാട്ടുകാർ വെട്ടി ത്തെളിച്ചു ജനവാസകേന്ദ്രങ്ങളിൽ പലതവണ കടുവയെ കാണുകയും പശുവിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു